രണ്ടുവയസ്സുകാരൻ ് മരിച്ചു

ഇന്ത്യൻ സംഘത്തെ സൈനാ നെഹ്വാളും ലക്ഷ്യ സെന്നും നയിക്കും

വാർഷിക നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി സൌദിയിലെത്തിയത് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാനുള്ള നടപടികൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ചർച്ചയാകും ഇരുരാജ്യങ്ങളും വിവിധ കരാറുകളിലും ഒപ്പുവയ്ക്കും

ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് റിയാദ് ഗവർണർ ഫൈസൽ ബിൻ ബന്ദാർ അൽസൌദ് ശ്രീ

മൂന്നാമത് വാർഷിക നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി സൌദിയിലെത്തിയത് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം പ്രതിരോധം സുരക്ഷ വ്യാപാരം വിദ്യാഭ്യാസം തുടങ്ങി നിർണായകമേഖലകളില്ലെല്ലാം ഇന്ത്യയും സൌദിയും സഹകരിച്ചു പ്രവർത്തിക്കുന്നതായി ശ്രീ

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സ്ത്രിക്കരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയെളരുക്കുമെന്ന് സൌദി അറേബൃയിലെ ഇന്ത്യൻ സ്ഥാനപതി ഒസാഫ് സയിട്ട് പറഞ്ഞു സൌദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ക്ടിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരുമായി ശ്രീ ് മ്ലോട്ടി കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും

യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം ഭീകരവാദത്തിന് ഉത്തരവാദികളായവർക്കും പിന്തുണയ്ക്കുന്നവർക്കും എതിരെ കർശന നടപടി ആവശ്യമാണെന്നും ശ്രീ

യൂറോപ്യൻ പാർലമെന്റിലെ പ്രതിനിധി സംഘത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും സമഗ്ര വികസനം ഉറപ്പാക്കാനാണ് ഇവയെ രണ്ട് കേന്ദ്രഭരണപ്രദേശങ്ങളായി വിഭജിച്ചതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

നിശ്ചിത സമയത്തിനുള്ളിൽ ത്യാൽ ബാലറ്റ് പൂരിപ്പിച്ച് വോട്ട് രേഖപ്പെടുത്തി തിരിച്ചയയ്ക്കണം വയോധിക്ടർക്കും ദിവ്യാംഗർക്കും ബൂത്തുകളിലെത്താൻ കഴിയാതെ അവരുടെ സമ്മതിദ്ദാനാവകാശം നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം

ബോർഡ് പരീക്ഷകൾ സുഗമമായി നടത്താനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ കശ്മീർ ഡിവിഷണൽ കമ്മിഷണർ ബഷീർ അഹമ്മദ് ഖാൻ എല്ലാ ഡെപ്യൂട്ടി കമ്മീഷണർമാരോടും ആവശ്യപ്പെട്ടു പരീക്ഷാ സാമഗ്രികൾ അതാത് പ്രദേശങ്ങളുടെ പരിധിയിൽ വരുന്ന പൊലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വാങ്ങാനും പരീക്ഷയ്ക്കുശേഷം ഉത്തരക്കടലാസുകൾ ഉൾപ്പെടെയുള്ളവ പൊലീസ് സ്റ്റേഷനുകളിൽതന്നെ തിരിച്ചു സമർപ്പിക്കാനും സ്കൂൾ അധികാരികളോട് സ്കൂൾ ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട്

ഇരു രാജ്യങ്ങങ്ങളുടെയും സൈന്യങ്ങളുടെ സഹകരണവും പരസ്പരമുള്ള ആശയ കൈമാറ്റവും സൈനിക പരിശീലനത്തിന്റെ ലക്ഷ്യമാണ്

കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മേഴ്ർട്ടത്തിനായി മണപ്പാറ ആശുപത്രിയിലേക്ക് മാറ്റി

പരമേശ്വരൻ

വാറ്റ് നിലവിലുണ്ടായിരുന്ന കാലത്തെ നികുതി കുടിശ്ശികയുടെ പേരിൽ ഗവൺമെന്റ് വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് കടയടപ്പ്

നേരത്തെ കുറഞ്ഞ തുക ശുപാർശ ചെയ്തിരുന്നവർക്കും പുതിയ ശുപാർശ പ്രകാരം മുഴുവൻ തുകയും ലഭിക്കും

സുസ്ഥിര വികസനത്തിനും വളർച്ചയ്ക്കുമായി കമ്പനികൾ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്

യോഗ്യതയ്ക്ക് അനുസരിച്ച് റെയിൽവേയുടെ വിവിധ മേഖലകളിൽ ദിവ്യാംഗർക്ക് ജോലി നൽകുമെന്നും അർഹരല്ലാത്തവർക്ക് നിയമനം നൽകില്ലെന്നും ക്റ്റയിൽവേ പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യൻ റെയിൽവേയിൽ ദിവ്യൂട്ട്രാർക്കായി നീക്കിവച്ചിരിക്കുന്ന തസ്തികകൾ നികത്തുന്നതിലെ ക്രമക്കേട്ടുക്ട്ൾക്കതിരെ ന്യൂഡൽഹിയിൽ ദിവ്യാംഗർ പ്രതിഷേധിച്ചിരുന്നു

ശ്രീലങ്കൻ തീരത്തിനടുത്തായി ബംഗാൾ ഉൾക്കടൂലിൽ തെക്ക്പടിഞ്ഞാറൻ മേഖലയിലായി ന്യൂനമർദ്ദം രൂപം കൊണ്ടതിന്റെ ഫലമായാണ് ഇത്

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് ആഴക്കടലിൽ പോയവർ ഉടൻ തിരിച്ചെത്തണം

ജർമ്മനിയുടെ ഫെബിനെ ഡിപ്രസ്സുമായാണ് ലോകതാരമായ സൈനയുടെ പോരാട്ടത്തുടക്കം ബെൽജിയം ഡച്ച് ഓപ്പൺ ടൂർണമെന്റുകളിലെ നേട്ടവുമായാണ് പുരുഷവിഭാഗം സിംഗിൾസിൽ ലക്ഷ്യസെൻ ഇറങ്ങുന്നത്